എസ് ആർ

എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടുമെന്ന് കേരള വ്യാപാരി വൃവസായി ഏകോപന സമിതി അറിയിച്ചു

വീടും പരിസരവും പൂർണമായി ശുചിയാക്കുന്നതിന് ഈ ദിവസം വിനിയോഗിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹാനം ചെയ്തു